മേഘാലയയിൽ എൻ പി പി നേതാവ് കോൺറാഡ് സാംഗ്മയുടെ നേതൃത്വ

പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പ് കേസിൽ മലയാളി ഉൾപ്പെടെ നാലുപേരെ കൂടി സി ബി ഐ അറസ്റ്റ് ചെയ്തു ഹൈക്കോടതി മുൻ ജഡ്ജിയും സംസ്ഥാന വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷ യുമായ ജസ്റ്റിസ് ഡി

ഐ എസ് എൽ ഫുട്ബോളിൽ എഫ് സി ഗോവ സെമിയിൽ പ്രവേശിച്ചു

പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം ഇന്നാരംഭിക്കും ഒരു മാസത്തെ ഇടവേളയ്ക്കുശേഷമാണ് ലോക്സഭയും രാജ്യസഭയും സമ്മേളിക്കു ന്നത് അടുത്ത സാമ്പത്തിക വർഷത്തെ ബജറ്റ് പാസ്സാക്കുന്നതിനും വിവിധ മന്ത്രാ ലയങ്ങളുടെ ഉപ ധനാഭ്യർത്ഥനകൾക്കുമായാണ് രണ്ടാം ഘട്ടം ചേരുന്നത് ബാങ്ക് വായ്പാ തട്ടിപ്പ് നടത്തി രാജ്യം വിട്ട നീരവ് മോദി അടക്കമുള്ളവരുടെ വിഷയങ്ങൾ സമ്മേളനത്തിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ച സാഹചര്യ ത്തിൽ സമ്മേളനം പ്രക്ഷുബ്ധമാകാൻ ഇടയുണ്ട്

എ ഗവൺമെന്റിന്റെ ഭര ണകാലത്തെ അഴിമതികൾ പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് ബി ജെ പിയും അറി യിച്ചിട്ടുണ്ട് ബാങ്ക് തട്ടിപ്പ് വിഷയം ഇന്ന് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭ യിൽ കോൺഗ്രസ് നേതാവ് ആനന്ദ് ശർമ്മ നോട്ടീസ് നൽകി സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നവരുടെ ആസ്തികൾ കണ്ടുകെട്ടുന്നതിന് ഗവൺമെന്റിന് അധികാരം നൽകുന്ന ബില്ല് സമ്മേളനത്തിൽ ഗവൺമെന്റ് കൊണ്ടുവരും മുത്തലാഖ് ബിൽ ഒ ബി സി ബിൽ പാസ്സാക്കുന്നതും ഗവൺമെന്റിന്റെ അജണ്ടയിലുണ്ട് പാർലമെന്റിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷപാർട്ടി കൾ രണ്ടുദിവസത്തിനകം യോഗം ചേരും ദളിതർക്കും സ്ത്രീകൾക്കുമെതിരായ അതിക്രമങ്ങൾ കർഷക പ്രശ്നങ്ങൾ വർദ്ധിച്ചുവരുന്ന തൊഴിലില്ലായ്മ തുടങ്ങിയ വയും പ്രതിപക്ഷം പാർലമെന്റിൽ ഉന്നയിക്കും

മന്ത്രിസഭ രൂപീകരിക്കാൻ കോൺറാഡ് സാംഗ്മയെ ഗവർണർ ക്ഷണി ച്ചതായി ബി

പി നേതാവും കേന്ദ്രമന്ത്രിയുമായ അൽഫോൺസ് കണ്ണന്താനം ഷില്ലോംഗിൽ അറിയിച്ചു

നാഗാലാന്റിൽ എൻ ഡി പി പി നേതാവ് നെഫ്യുറിയോ മന്ത്രിസഭാ രൂപീകരണത്തിന് അവകാശമുന്നയിച്ചു തന്നെ പിന്തുണയ്ക്കുന്ന ബി ജെ പി ജെ ഡി യു അംഗങ്ങളുടെയും കക്ഷിരഹിതരുടെയും കത്ത് അദ്ദേഹം ഗവർണർ പി

ആചാര്യയ്ക്ക് കൈമാറി

ഇടതുപക്ഷം നശിക്കുന്നത് ഇന്ത്യയുടെ നാശമാണെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് ലാറി ബേക്ക റുടെ ജന്മശതാബ്ദി ആഘോഷ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തുക യായിരുന്നു അദ്ദേഹം ജനങ്ങളുടെ താൽപര്യങ്ങൾ മനസ്സിലാക്കി ഇടതുപക്ഷം പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് ജയറാം രമേഷ് ആവശ്യപ്പെട്ടു കേന്ദ്രഭരണം ഉപയോഗിച്ചും വൻതോതിൽ പണം ഒഴുക്കിയും വിഘട നവാദികളെ കൂട്ടുപിടിച്ചുമാണ് ത്രിപുരയിൽ ബി ജെ പി വിജയം നേടിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ബി ജെ പിയുടെ വിജയം ഇടതുപക്ഷ ത്തിന് മാത്രമല്ല രാജ്യത്തെ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികൾക്കാകെ തിരിച്ച ടിയാണെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു കോൺഗ്രസിനെ പൂർണ്ണ മായി തന്നെ ബി ജെ പി പിടിച്ചെടുത്തുവെന്നത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും പിണറായി പറഞ്ഞു ഈ തിരിച്ചടി താൽക്കാലികമാണെന്നും ഇടതുപക്ഷം തിരി ച്ചുവരുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു

കേന്ദ്ര ഭരണ ത്തിന്റെ സ്വാധീനമുപയോഗിച്ചാണ് ബി ജെ പി ത്രിപുരയിൽ ഭരണം പിടിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു പാമ്പൻ മാധവൻ സ്മാരകസമിതി കണ്ണൂരിൽ സംഘടി പ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കോടിയേരി

ദ ഷേപ്പ് ഓഫ് വാർട്ടർ ത്രീ ബിൽ ബോർഡ്സ് ഔട്ട് സൈഡ് എബ്ബിംഗ് മിസൂറി ഡാർക്കസറ്റ് അവർ തുടങ്ങി ഒമ്പത് ചിത്രങ്ങളാണ് മികച്ച ചിത്രത്തിനായി നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത്

നാഷണൽ ബാങ്ക് തട്ടിപ്പ് കേസിൽ മലയാളി ഉൾപ്പെടെ നാലുപേരെ കൂടി സി ബി ഐ അറസ്റ്റ് ചെയ്തു നീരവ് മോദിയുടെ തട്ടിപ്പിൽ ഉൾപ്പെട്ട ബന്ധു മെഹുൽ ചോക്സിയുടെ ഗില്ലി ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഡയറക്ടർ പാലക്കാട് സ്വദേശി അനിയത്ത് ശിവരാമൻനായരാണ് അറസ്റ്റിലായ മലയാളി നീരവ് മോദി ഗ്രൂപ്പിലെ ഓഡിറ്ററും രണ്ട് ജീവനക്കാരുമാണ് അറസ്റ്റിലായ മറ്റുള്ളവർ ഹൈക്കോടതി മുൻ ജഡ്ജിയും സംസ്ഥാന വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷയുമായ ജസ്റ്റിസ് ഡി ശ്രീദേവി അന്തരിച്ചു

കൊച്ചി കലൂർ ആസാദ് റോഡിലെ മകന്റെ വസതിയിൽ പുലർച്ചെ രണ്ടുമണി യോടെയായിരുന്നു അന്ത്യം കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് രണ്ടു മാസമായി ചികിത്സയിലായിരുന്നു ജസ്റ്റിസ് ശ്രീദേവി

മികച്ച സാമൂഹിക പ്രവർത്തകയ്ക്കുള്ള അക്കാമ ചെറിയാൻ അവാർഡ് ലഭിച്ചിട്ടുണ്ട് സംസ്കാരം വൈകിട്ട് അഞ്ചിന് എറ ണാകുളം രവിപുരം ശ്മശാനത്തിൽ നടക്കും

ഇതോടെ മറ്റന്നാൾ ആരംഭിക്കുന്ന സെമി ഫൈനൽ നിര വ്യക്തമായി

ശനിയാഴ്ച ഗോവയിൽ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ചെന്നൈയിൻ എഫ് സിയും ഗോവ എഫ് സിയും തമ്മി ലാണ് മത്സരം

എല്ലാ മത്സരങ്ങളും രാത്രി എട്ടിനാണ് നടക്കുന്നത്

പഞ്ചാബിലെ പട്യാലയിൽ ആരംഭിക്കും കോമൺവെൽത്ത് ഏഷ്യൻ ഗെയിംസ് മത്സരങ്ങളിലേക്ക് യോഗ്യത നേടുക എന്ന ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടാണ് താര ങ്ങൾ മത്സരത്തിനിറങ്ങുന്നത്

ഓപറേറ്റീവ് കോളേജുകളുടെ കലോത്സവത്തിൽ പരപ്പനങ്ങാടി കോ ഓപറേറ്റീവ് കോളേജ് ജേതാക്കളായി മണ്ണാർക്കാട് കോ ഓപറേറ്റീവ് കോളേജ് രണ്ടാം സ്ഥാനവും പാലക്കാട് കോ ഓപറേറ്റീവ് കോളേജ് മൂന്നാം സ്ഥാനവും നേടി സമാ പന സമ്മേളന ഉദ്ഘാടനവും സമ്മാനദാനവും മന്ത്രി എ

ഡോക്ടർ കെ

ജലീൽ പറഞ്ഞു മൂന്ന് വർഷത്തിനകം ലക്ഷ്യം പൂർത്തീകരിക്കും

ഗ്രാമഗ്രാമാന്തരങ്ങളിൽ നിന്ന് ശേഖരി ക്കുന്ന പ്താസ്റ്റിക്കുകൾ നുറുക്കിയെടുത്ത് തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങളിലെ റോഡുകൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കും മുഴുവൻ ജലാശയങ്ങളും ശുചീ കരിക്കുമെന്നും ശുചിത്വമിഷൻ മുഖേന എല്ലാ നഗരസഭകളിലും വാതക ശ്മശാന ങ്ങൾ നിർമ്മിക്കുമെന്നും മന്ത്രി പറഞ്ഞു കൂത്തുപറമ്പ് നഗരസഭയുടെ പുതിയ ബസ്സ്റ്റാന്റിന്റെ ശിലാസ്ഥാപനം നിർവ്വഹിക്കുകയായിരുന്നു ജലീൽ നാടിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ ആയുർവ്വേദ മേഖലയിൽ വലിയ മുന്നേറ്റമുണ്ടാവണമെന്ന് മന്ത്രി കെ

കണ്ണൂർ ജില്ലയിലെ മൊകേരിയിൽ ഗ്രാമീണം പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഗ്രാമീണ ജനതയുടെ ആരോഗ്യ സാമ്പത്തിക അഭിവൃദ്ധി ലക്ഷ്യമിട്ട് ദേശീയ ഔഷധ സസ്യ ബോർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ സംസ്ഥാന ഔഷധ സസ്യ ബോർഡ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗ്രാമീണം

ണ്ടിലേറെയായി പട്ടയത്തിനായി കാത്തിരിക്കുന്നവർക്ക് പട്ടയം നൽകണമെന്ന് പ്രതി പക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു

എമ്മിന്റേതെന്നും പിണറായിയുടെയും കോടിയേരിയുടെയും സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള തന്ത്രങ്ങളാണ് സി

എം നടപ്പാക്കുന്നതെന്നും എൻ

പ്രേമചന്ദ്രൻ എം പി പറഞ്ഞു ബേബി ജോൺ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് ആർ എസ് പി ജില്ലാ കമ്മിറ്റി പാലക്കാട് സംഘടി പ്പിച്ച കുടുംബ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ട രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ച പി

ടായ ആലപ്പുഴ മുഹമ്മ കായിപ്പുറത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ ആദരിച്ചു മുതിർന്ന ബി ജെ പി നേതാവ് ഒ രാജഗോപാൽ എം എൽ എ അധ്യക്ഷനായിരുന്നു

ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ സ്വാമി ബ്രഹ്മ പാദാനന്ദ സ്വാമി നയിക്കുന്ന രഥയാത്ര ഇന്നലെ കൊല്ലൂ രിൽ നിന്നാണ് പ്രയാണം തുടങ്ങിയത്

നായർ സർവ്വീസ് സൊസൈറ്റിയുടെ ഹോട്ടൽ ശൃംഖല കേരളത്തിലെ എല്ലാ താലൂക്കുകളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് എൻ എസ് എസ് ജനറൽ സെക്ര ട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞു എൻ എസ് എസിന്റെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായ പത്മ കഫേ ഹോട്ടൽ ശൃംഖലയുടെ പത്തനംതിട്ട അടൂരിൽ ആരംഭിച്ച ആദ്യ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

പോലീസ് ഓഫീസർ വിപിന്റെ മൃതദേഹം കൊല്ലം എ ആർ ക്യാമ്പിൽ പൊതുദർശനത്തിന് വച്ചു

സംസ്കാരം ഇന്ന് ഉച്ചയോടെ തേവന്നൂരിലെ വീട്ടുവളപ്പിൽ നടക്കും

പത്തനംതിട്ട നിരണം പനച്ചമൂട് സ്വദേശി പ്രതീഷാണ് നീരേറ്റുപുറ ത്തിന് സമീപം പമ്പാനദിയിൽ മുങ്ങി മരിച്ചത്

പാപ്പിനിശ്ശേരിയിലെ നൂറുദ്ദീനാണ് മരിച്ചത്

ഉച്ചഭക്ഷണം വിതരണം ചെയ്തു